ഭാരത് റോസ്ഗാർ പദ്ധതിയ്ക്ക് കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം

ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പ്പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനിമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും

തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിൽ കേരളത്തിലെ അഞ്ച് ജില്ല കൾ നാളെ പോളിംഗ് ബൂത്തിലേയ്ക്ക് വോട്ടെടുപ്പ് സജീകരണങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ പോരാട്ടം

പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം

അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരം പരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവലംബിച്ചുള്ളതുമായിരിക്കും ലോക്സഭയ്ക്ക് നിലവിലുള്ളതിനെക്കാൾ മൂന്നിരട്ടി വലിപ്പമുണ്ടാകും

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

ശൃംഖലയ്ക്ക് പി എം വാണി എന്ന് പേരിടും എന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു രാജ്യത്ത് പൊതു ജനങ്ങൾക്കായുള്ള വൈഫൈ ശൃംഖലകളുടെ വളർച്ചയ്ക്കും വൈഫൈ വിപ്സവത്തിനും തീരുമാനം വഴി തുറക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കൊച്ചി മുതൽ ലക്ഷദ്വീപ് സമൂഹങ്ങൾ വരെ സമുദ്രത്തിനടിയിൽ കൂടിയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലക്കും ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു

അരുണാചൽ പ്രദേശിലും അസമിലെ രണ്ട് ജില്ലകളിലും മൊബൈൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്കും ക്യാബിനറ്റ് അനുമതി നൽകിയിട്ടുണ്ട്

സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം വർധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് സെബി നേരത്തെ ശിപാർശ സമർപ്പിച്ചിരുന്നു ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലകളിലാണ് സുരിനാമുമായി ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് ഇരു രാഷ്ട്രങ്ങളിലെയും ആരോഗൃ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും സംയുക്ത നടപടികൾക്കും ആരോഗ്യമേഖലയിലെ സാങ്കേതികവിദ്യ വികസനത്തിനും നടപടി പ്രചോദ്യന്മേക്കും ഇന്ത്യയ്ക്കും സൂരിനാമിനുമിടയിലുള്ള ഉഭയകക്ഷി ബ്ന്ധം ശക്തിപ്പെടുത്താനും ഗവേഷണം അടക്കമുള്ള നടപ്പടികളിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ സ്വയംപര്യാപ്തത ക്ടൈവരിക്കാനും നടപടി വഴിതുറക്കും എന്നാണ് കരുതപ്പെടുന്നത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപന യോഗം അഭിസംബോധന ചെയ്യും

ആയുഷ് മന്ത്രാലയം സെക്രട്ടറിയും എയിംസ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം

ഭീകരർ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പുലർച്ചെ മുതൽ സൈന്യം പ്രദേശത്തു തിരച്ചിൽ നടത്തുകയായിരുന്നു ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട് മേഖലയിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണ്

അഞ്ച് ജില്ലകളിലെയും വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കൃമ്മിഷൻ അറിയിച്ചു കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട്ട് വിയനാട് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്

ആദ്യ ഘട്ടത്തിൽ ചിലയിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചകളുണ്ടായതായി മന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോവിഡ് രോഗികൾ വർദ്ധിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു

എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി ചെന്നൈയിൻ സിറ്റി എഫ്

എം

ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരുവും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും രണ്ട് ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

രാജ്യത്ത് നിന്നും അഴിമതി തുടച്ചു നീക്കുന്നതിനു പ്രഥമ പരിഗണന നൽകേണ്ടത്തിന്റെ ആവശ്യകത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി

കർഷകരുടെ ഭൂമി ആർക്കും അനധികൃതമായി കൈവശപ്പെടുത്താൻ ആകില്ലെന്നും പൂർണമായും തുക നൽകിയതിനുശേഷം അല്ലാതെ കരാർ അവസാനിപ്പിക്കാൻ കരാറുകാർക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു